ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിലേയ്ക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും

ജമ്മു കാശ്മീരിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കർണാടക രണ്ടാംഘട്ടത്തിലാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അസം ബീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ മണിപ്പൂർ ത്രിപുര പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങളിലേക്കും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കും

ഒഡീഷയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുകയാണ്

കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യദിനം സമർപ്പിച്ചത് എട്ടു പത്രികകളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടും ആറ്റിങ്ങൽ കൊല്ലം ഇടുക്കി ചാലക്കുടി വയനാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോ പത്രികയുമാണ് സമർപ്പിച്ചിട്ടുള്ളത്

തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ

മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കൂട്ടിയും പൊന്നാനി മണ്ഡലത്തിലെ ഇ

പി നേതാവ് ജസ്വന്ത് സിംഗിന്റെ മകൻ മാനവേന്ദ്രസിംഗ് ബാർമറിൽ നിന്നും മത്സരിക്കും മുൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രമൺ നാരായണൻ മീണ സവിത മീണ ജ്വോതി ഖണ്ഡേവാൾ നമോ നാരായൺ മീണ ജ്യോതി മിർധ എന്നിവരും രാജസ്ഥാനിലെ കോൺഗ്രസ് പട്ടികയിൽ ഇടം നേടി ഉത്തർപ്രദേശിലും പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മത്സരിക്കുന്നുണ്ട് റിട്ട മേജർ ജെ

സിംഗ് സാമ്പലിലും നിയാസ് അഹമ്മദ് ദിയോറിയലും പങ്കജ് നിരഞ്ജൻ ഫുൽപൂരിലും ജനവിധി തേടും ഗുജറാത്തിലെ പത്താൻ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് മുതിർന്ന നേതാവ് ജഗദീഷ് താക്കൂറും രാജ് കോട്ടിൽ ലളിത് കഗാധരയുമാണ്

എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം മുംബൈയിൽ ആദായ നികുതി വകുപ്പിൽ അഡീഷണൽ കമ്മീഷണറാണ് തുടർന്ന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് എക്സ്പെന്റിച്ചർ ഒബ്സർവർമാർ അക്കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർ വീഡിയോ സർവയലൻസ് ഉദ്യോഗസ്ഥർ വീഡിയോ നിരീക്ഷണ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അദ്ദേഹം നിർദേശങ്ങൾ നൽകി

ജമ്മുവിലെ അഖ്നൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

പാകിസ്ഥാൻ നിര്ന്ത്ര്മായി വെടിനിർത്താൽ കരാർ ലംഘിക്കുന്നതുകൊണ്ടാണ് അന്താര്യാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും താമസിക്കുന്ന ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തരാഖണ്ഡിലെ രുദ്ധ്പൂരിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ബിജെപി ഗവൺമെന്റുകൾ ഉത്തരാഖണ്ഡിൽ ഗതാഗത സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്കും കൃഷിക്കാർക്കും ഗവൺമെന്റ് വരുമാനം ഉറപ്പാക്കിയതായും ശ്രീ മോദി പറഞ്ഞു വെറും മുദ്രാവാക്യങ്ങളല്ല ഉറച്ച നടപടികളാണ് തന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളതെന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാക്കിസ്ഥാൻ നടപടിയെടുക്കാൻ തയ്യാറാകാത്തത് ഖേദകരമാണെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഭീകരവാദികൾക്ക് എതിരെ നടപടിയെടുത്തെങ്കിൽ പാക്കിസ്ഥാൻ എന്തുകൊണ്ട് തെളിവുകൾ പങ്കുവെക്കുന്നില്ല

സൂരക്ഷാ സമിതിയിൽ അനൌദ്യോഗികമായി നടക്കുന്ന നടപടിയ്ക്കെതിരെ പ്രസ്താവന നടത്തുന്നത് നടപടിക്രമങ്ങൾക്ക് എതിരാകുന്നതിനാൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചില്ല മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടെ സമ്മർദ്ദം ചെലുത്തിവരികയാണ് പുൽവാമ ഭീകരാക്രമണത്തിനു പിന്നിൽ ഉത്തരവാദിത്തം ജെയ്ഷെ ഇ മുഹമ്മദ് ഏറ്റെടുത്തതിനെ തൂടർന്നാണ് അസൂദിന് എതിരായ നിലപാട് ഇന്ത്യ ശക്തമാക്കിയത്

രണ്ട് തവണ കരാർ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോഴും പരാജയപ്പെട്ടിരുന്നു ഇത്തവണ എം പിമാർ പിന്തുണയ്ക്കുകയാണെങ്കിൽ കരാർ പാർലമെന്റിൽ പാസാകുമെന്ന വിശ്വാസത്തിലാണ് തെരേസ മേ

രത്തൻപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൈലാസ് നഗറിലാണ് സംഭവം നടന്നത് അപകടം അറിഞ്ഞയുടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേയ്ക്ക് കൊണ്ടുപോയി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന

തീ നിയന്ത്രണവിധേയമാക്കി

വരും ദിവസങ്ങളിലും ഇതേ സ്ഥിതി തുടരുമെന്നാണ് മുന്നറിയിപ്പ്

ഞായറാഴ്ച വരെയാണ് മേള കേരള ചലച്ചിത്ര അക്കാദമി ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മലപ്പുറം നഗരസഭ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ചല്ലച്ചിത്രോത്സവം

ജോർജ്ജ് എം

നടിയുടെ പേര് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം

ഇരയെ അപകീർത്തിപ്പെടും വിധത്തിലുള്ള പ്രവൃത്തികൾ കുറ്റം ആവർത്തിക്കുന്നതിന് തുല്യമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി വിമർശനത്തെ തുടർന്ന് പി

ജോർജ്ജ് ഹർജി പൻവലിച്ചു

എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും